പിന്തുണ

എക്സ്പ്രസ് സർവ്വീസിന് തുടക്കമായി

വിരാട് കോഹ്ലി ഒന്നാം സ്ഥാനത്ത് തുടരുന്നു

മിർവൈസ് ഒമർ ഫാറൂഖ് അബ്ദുൾ ഘനി ഭട്ട് ബിലാൽ ലോൺ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷയാണ് പിൻ വലിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കിയത് സുരക്ഷയോടൊപ്പം ഇവർക്ക് നൽകിയിരുന്ന വാഹനങ്ങളും പിൻവലിച്ചിട്ടുണ്ട് മറ്റ് വിഘടനവാദി നേതാക്കൾക്ക് ആർക്കെങ്കിലും സുരക്ഷ ലഭിക്കു ന്നുണ്ടോ എന്നതും പോലീസ് വിലയിരുത്തും പാകിസ്ഥാനിൽ നിന്നും പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐഎസ് ഐ ൽ നിന്നും ആർക്കെങ്കിലും ധനസഹായം ലഭിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു ജമ്മുകാശ്മീരിലെ നിലവിളല സുരക്ഷാ സ്ഥിതി അദ്ദേഹം വിലയിരുത്തി

തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഇന്ത്യൻ സൈനികരുടെ ഫലവത്തായ പ്രവർത്തന ങ്ങൾ പാകിസ്ഥാന് അസൂയ ഉളവാക്കി

ഇതിനെതിരെ ശക്തമായ തിരിച്ചടി നൽകാൻ സൈനൃത്തിന് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്

ആർ

എഫ് ജവാന്മാരുടെ ജീവത്യാഗം വെറുതെയാവില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു

ഇന്നലെ ടെഹ്റാനിൽ വച്ച് വിദേശകാര്യമന്ത്രി സുഷമസ്വരാജ് പാകിസ്ഥാൻ നടപടികളെ അപലപിച്ചു പാകിസ്ഥാൻ പിന്തുണയോടെയുള്ള തീവ്രവാദ ആക്രമണങ്ങളിൽ ഇന്ത്യയുടെയും ഇറാന്റെയും സൈനികർ കൊല്ലപ്പട്ടതായി ശ്രീമതി

ഇറാനിൽ എത്തിയ ശ്രീമതി സുഷമസ്വരാജ് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി സയ്ദ് അബ്ബാസ് അരാഗ്ചിയുമായി കൂടിക്കാഴ്ച നടത്തി

മേഖലയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ തടയാൻ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർ ത്തിക്കുമെന്നും അറിയിച്ചു

ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദ സംഘടനകളാണെന്ന് ഇറാൻ ആരോപിക്കുന്നു

പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരുന്ന ഏറ്റവും അ്ഭിമൃത് രാഷ്ട്രമെന്ന പദവി വെള്ളിയാഴ്ച പിൻവലിച്ചതിന് പിന്നാളലയാണ് നടപടി പുൽവാമ ഭീകരാക്രമണ ത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി കസ്റ്റംസ് തീരുവ വർദ്ധി പ്പിച്ചതോടെ പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി ഗണ്യമായി കുറയുമെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജയ്റ്റ്ലി ടിറ്ററിൽ കുറിച്ചു

പഴവർഗങ്ങൾ സിമെന്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ വയാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്തൃയിലേക്ക് പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്നത്

അന്തരിച്ച ജവാന് റീത്തുകൾ അർപ്പിച്ചും പുഷ്പങ്ങൾ വിതറിയും സൈന്യം ശ്രദ്ധാഞ്ജലിയിൽ പങ്കു ചേർന്നു

കൂടുതൽ വിവരങ്ങളുമായി അരുൺ കെ

ആരോഗ്യം ശുദ്ധജലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അതുകൊണ്ട് ഗവൺമെന്റ് ശുദ്ധജലം വിതരണം ചെയ്യാൻ ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞൂർ സ്പ്ട്ടു അഭിയാൻ പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കിയതിന് ജാർഖ്ഖ്സ്ഥിനെ അഭിനന്ദിക്കുകയും ചെയ്തു

പുൽവാമ തീവ്രവാദി ആക്രമ ണത്തിൽ വീരമൃത്യുവരിച്ച ബീഹാർ സ്വദേശികളായ സൈനികർ സഞ്ജയ് കുമാർ സിൻഹ രത്തൻ ഠാക്കൂർ എന്നിവർക്ക് പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചു പുൽവാമ സംഭവം എല്ലാ ഇന്തൃക്കാരുടേയും മനസ്സിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യ വികസനത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ബിഹാറെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ട്രെയിനിന്റെ അടുത്ത രണ്ടാഴ്ചത്തേയ്ക്കുള്ള ടിക്കറ്റുകളെല്ലാം ബുക്കു ചെയ്യപ്പെട്ടു കഴിഞ്ഞുവെന്ന് കേന്ദ്ര റെയിൽവെ മന്ത്രി പീയുഷ് ഗോയൽ വൃക്തമാക്കി ഇന്ത്യയിൽ നിർമ്മിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് ന്യൂഡൽഹിയിൽ നിന്ന് കാൺപൂർ പ്രയാഗ്രാജ് വഴിയാണ് വാരാണസിയിലെത്തുക എട്ട് മണിക്കൂറാണ് യാത്രാ സമയം

കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേ പണ മന്ത്രി കേണൽ രാജ്യവർദ്ധൻ റാത്തോഡ് അദ്ദേഹത്തെ ന്യൂ ഡൽഹിയിൽ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശ്രീ

കാർഷിക പ്രദർശനം നടക്കുന്ന അന്താരാഷ്ട്ര പഴവർഗ്ഗ വ്യാപാര കേന്ദ്രവും ശ്രീ

നാല് ദിവസം വാദം തുടരും

നാളെയാണ് ഇന്ത്യയുടെ വാദം

കേസ് തീരുന്നതുവരെ വധശിക്ഷ നടപ്പാക്കരുതെന്ന് പത്തംഗ ബഞ്ച് ഉത്തരവിട്ടിരുന്നു പാകിസ്ഥാൻ് സൈനിക കോടതിയിലെ വിചാരണ പ്രഹസനമായിരുന്നു എന്നാണ് ഇന്ത്യയുടെ ആരോ പണം

എന്നാൽ ബിസിനസ് ആവശ്യ ത്തിനായി ഇറാനിൽപോയ ജാദവിനെ പാകിസ്ഥാൻ തട്ടിക്കൊണ്ടു പോയതാണെന്നാണ് ഇന്ത്യയുടെ വാദം

തൊഴിലാളികൾക്ക് സംരക്ഷണിർ നൽകേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണെന്നും അതിന്നു അനു്സൃതമായി പദ്ധതികൾക്ക് രൂപം നൽകി വരികയാണെന്നൂ് അദ്ദേഹം പറഞ്ഞു

പ്രതിജ്ഞാബദ്ധമെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു രണ്ടാം കാശ്മീരാകാൻ ആസാമിനെ ബി ജെ

മൻകി ബാതിൽ പങ്കുവയ്ക്കേണ്ട ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെ അറിയി ക്കുവാൻ പ്രധാനമന്ത്രി ടിറ്ററിലൂടെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

ഇന്ത്യൻ താരം തേജേസ്വർ പൂജാരക്ക് മൂന്നാം സ്ഥാനം